ആശുപത്രികളാക്കി മാറ്റുമെന്ന് മന്ത്രി കെ

സ്ത്രീ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ കഴിയുന്ന കാര്യക്ഷമ മായ പൊലീസ് സംവിധാനം രാജ്യത്ത് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഡി ജി പിമാരുടെയും ഐ ജിമാരുടെയും കോൺഫറൻസിന്റെ സമാപന സമ്മേളനം അഭിസംബോ ധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂ ഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വിശാസം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പൊലീസ് സേന പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ യത്നിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സംസ്ഥാനങ്ങളോട് ഇതു സംബന്ധിച്ച് നിർദ്ദേശം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു പൌരത്വ ഭേദഗതി ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉച്ചക ഴിഞ്ഞ് ലോക്സഭയിൽ അവതരിപ്പിക്കും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാ നിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായെത്തുന്ന മുസ്പിംങ്ങൾ ഒഴികെ മതവിഭാഗങ്ങൾക്ക് പൌരത്വം നൽകാൻ ഉദ്ദേശിച്ചാണ് നിയമഭേദഗതി ബിൽ ഇന്ന് പാസ്സാക്കാനായി ലോക്സഭ പരിഗണിക്കും കഴിഞ്ഞ ലോക്സഭ ബിൽ പാസ്സാക്കിയിരുന്നെങ്കിലും രാജ്യസഭയിൽ ബിൽ അവതരിപ്പിച്ചിരുന്നില്ല

രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിച്ചതിന്റെ ഇരകളാണിവ രെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പൌരത്വ ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ ശക്തമായി എതിർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നേതൃ ത്വത്തിൽ കോൺഗ്രസ് പാർലമെന്ററി ഗ്രൂപ്പ് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നാണ് ഈ തീരുമാനമെടുത്തത് ബിൽ ഭരണഘടനയ്ക്കും രാജ്യത്തിന്റെ മതേതര സ്ഥഭാവത്തിനും സംസ്കാരത്തിനും എതിരായതിനാൽ എതിർക്കു മെന്ന് ലോക്സഭയിലെ പാർട്ടി നേതാവ് അതിർ രഞ്ജൻ ചൌധരി വാർത്താ ലേഖകരെ അറിയിച്ചു ഉന്നാവിൽ യുവതിയെ പീഡനത്തിനിരയാക്കിയതും തീ കൊളുത്തി കൊന്നതും ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ലോക്സഭ യിലെ പാർട്ടി ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു നിയമഭേദഗതിയിലൂടെ മുഹമ്മദലി ജിന്നയുടെ ദ്വിരാഷ്ട്ര തിയറി ഗവൺമെന്റ് നടപ്പാക്കുകയാണെന്ന് സി പി ഐ എം ആരോപിച്ചു ലോകം ഒരു കുടുംബമാണെന്ന തത്വചിന്തയിലാണ് രാജ്യം വിശ്വസിക്കുന്നതെന്നും പാകി സ്ഥാൻപോലെയാകരുതെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ന്യൂഡൽഹിയിൽ പറഞ്ഞു

വേണ്ടത് ചെയ്യുമെന്നും ഇക്കാരൃത്തിൽ സമസ്തയുടെ നിലപാട് പാർലമെന്റ് അംഗങ്ങളെ അറിയിക്കുമെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കോഴിക്കോട്ട് പറഞ്ഞു ്വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം സംഘടനകളുടെ യോഗം ഇന്ന് വൈകീട്ട് കോഴിക്കോട്ട് ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇത് സംബന്ധിച്ച് സംഘടനകൾ ഒന്നിച്ച് നീക്കം നടത്തുന്ന കാര്യ ത്തിൽ സാഹചര്യമനുസരിച്ച് തീരുമാനമെടു ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ടി എൻ പ്രതാപൻ ഡീൻ കുര്യാക്കോസ് എന്നിവരെ ഈ പാർലമെന്റ് സമ്മേളനം കഴിയുന്നത് വരെ സസ്പെന്റ് ചെയ്യണമെന്ന പ്രമേയം ബിജെപി ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും ഉന്നാവ് സംഭവവുമായി ബന്ധപ്പെട്ട ബഹളത്തിനിടെ മന്ത്രി സ്മൃതി ഇറാനി പ്രസംഗിക്കുമ്പോൾ കൈ ചൂണ്ടി ആക്രോശിച്ചുവെന്നാണ് ഇരുവർക്കുമെതിരായ ആരോപണം

ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന്

ഫലം ബി

യെദ്യൂരപ്പ നേതൃത്വം നൽകുന്ന ബി

പി ഗവൺമെന്റിന് നിർണായകമാകും ആറ് സീറ്റുകളിലെങ്കിലും വിജയിക്കാനായാൽ മാത്രമേ യെദ്യൂരപ്പ ഗവൺമെന്റിന് അധികാരത്തിൽ തുടരാനാകുകയുള്ളൂ

സ്ഥപ്ന സദൃശ്യമായ ഉയരങ്ങളിലേക്ക് ഗവൺമെൻറ് ആശുപത്രികൾ എത്തിക്കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു

ജനങ്ങളെ ശരീരത്തിനും മനസിനും ആരോഗ്യമുള്ളവരാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യ വകുപ്പ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി കല്യാശ്ശേരിയിൽ മറ്റൊരു ചടങ്ങിൽ പറഞ്ഞു

അമറുപടി ബാറ്റിങ്ങിനി റങ്ങിയ വിൻഡീസ് ഒൻപത് പന്ത് ശേഷിക്കെ എട്ട് വിക്കറ്റിന് ലക്ഷ്യം മറികട ന്നു ഇതോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഇരു ട്രീമുകളും ഒപ്പത്തിനൊപ്പമെ ത്തി മറ്റന്നാൾ മുംബൈയിൽ നടക്കുന്ന മൂന്നാം മത്സരം ഇരുട്ടീമുകൾക്കും നിർണ്ണായകമാണ്

മെഡൽനേട്ടം തുടരുന്നു

ജൂനിയർ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കേരളം നാലാം സ്ഥാനത്ത്

ഗോവ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഹൈദരബാദ് എഫ് സിയെ തോൽപി ച്ചു ഹൈദരാബാദിന് സീസണിലെ അഞ്ചാം തോൽവിയാണിത് ഇന്ന് ജംഷ ഡ്പൂർ ചെന്നൈയിൻ എഫ് സിയെ നേരിടും

പത്ത് ഭാര വിഭാഗങ്ങളിൽ ആറിലും സ്വർണ്ണം നേടിയാണ് റെയിൽവെ ചാമ്പ്യൻമാരായത് ഹരിയാനയ്ക്കാണ് രണ്ടാം സ്ഥാനം കേരളത്തിന് മൂന്നു മെഡലുകൾ ലഭിച്ചു മന്ത്രി കെ

ലോട്ടറി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഭാഗൃക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും കോഴിക്കോട് ജില്ലാ കലാ കായിക മത്സരങ്ങൾ സമാപിച്ചു സമാപന സമ്മേളനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

മത്സരങ്ങൾ ഇന്ന് നടക്കും ഇന്നലെ ബാസ്ക്കറ്റ് ബാളിൽ കുന്നുമ്മൽ ബ്ലോക്കും ഫുട്ബാളിൽ പേരാമ്പ്ര ബ്ലോക്കും ചാമ്പ്യൻമാരായി ഇടുക്കി ജില്ലാതല കേരളോത്സവം സമാപിച്ചു

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൌലോസ് ഉദ്ഘാടനം ചെയ്തു

പയ്യന്നൂർ ബ്ലോക്കിനാണ് രണ്ടാം സ്ഥാനം

വൈവിധ്യമുള്ള പ്രമേയങ്ങൾ സ്ഥീകരിച്ചാലും സിനിമകളെ വിതര ണക്കാരും നിർമ്മാതാക്കളും മുൻവിധിയോടെയാണ് കാണുന്നതെന്ന് പ്രസിദ്ധ സംവിധായകൻ ശ്യാമപ്രസാദ് അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരത്ത് രാജ്യാ ന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് രണ്ടാം ദിവസം മീറ്റ് ദി ഡിറക്ടർ പരിപാ ടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ ഇന്ന് ഫാഹിം ഇർഷാദ് സംവിധാനം നിർവഹിച്ച ചിത്രം ആനി മാനിയുടെ ആദ്യ പ്രദർശനം നടക്കും ഉത്തർ പ്രദേശിൽ ബീഫ് കൈവശം വച്ചതായി ആരോപിച്ചു നടന്ന ആൾക്കൂട്ട കൊലപാതകമാണ് ചിത്രത്തിന്റെ പ്രമേയം മലയാള ചിത്രങ്ങളായ ഇഷ്ക്ക് സൈലെൻസർ കുമ്പളങ്ങി നൈറ്റ്സ് ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു ഒരു ഞായറാഴ്ച്ച രൌദ്രം എന്നിവയും ഇന്ന് പ്രദർശിപ്പിക്കും

സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന പഠനക്യാമ്പ് കാസർകോട് സമാപിച്ചു സി ഐ ടി യു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ

പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു

കൊല്ലം ശക്തികുളങ്ങരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കണ്ടെത്താനായില്ല മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും തെരച്ചിൽ തുടരുകയാണ്

കയർ കേരള അന്താരാഷ്ട്ര സമാ പന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

തോമസ് ഐസക് പറഞ്ഞു

കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഒന്നാം വാർഷികഘോഷം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

വിമാനത്തിൽ കുട്ടികളോടൊപ്പം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് യാത്രചെയ്യുകയും മാജിക് പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യും

ഗവൺമെന്റ് നയമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് തലക്കുളത്തൂർ തിരുവോത്ത് ക്ഷേത്രം ചുള്ളിയിൽ താഴം റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഗ്രാമീണ ഉത്സവങ്ങൾ മാനവികത വളർത്തുമെന്ന് മന്ത്രി സി

ടൂറിസ്റ്റ് ബസുടമകൾ ഇന്നു രാവിലെ കോഴിക്കോട്ട് മന്ത്രി എ കെ ശശീന്ദ്രനുമായി കൂടികാഴ്ച നടത്തും മോട്ടോർവാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ടൂറിസ്റ്റ്ബസുകൾക്കെതിരെ സ്ഥീകരിച്ച നടപടികളുടെ പശ്ചാത്തലത്തിലാണ് കൂടികാഴ്ച

കേരള ബാങ്ക് രൂപീകരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല ആഘോഷം ഇന്ന് വൈകീട്ട് മുതലക്കുളത്ത് നടക്കും